മന്ത്രിസഭാ രൂപീകരണ ശ്രമങ്ങൾ തുടങ്ങി ഈ ആഴ്ച പുതിയ സർക്കാർ അധികാരമേൽക്കും

മുൻ മന്ത്രി ആർ

അന്ത്യാഞ്ജലി സംസ്കാരം ഇന്ന് വൈകിട്ട്

ഡി എഫിലെ ഗവർണറെ കണ്ട് പാർട്ടികളുടെ നേതൃയോഗം ഇന്നും നാളെയുമായി ചേർന്ന് സഭാനേതാവിനെയും മന്ത്രിമാരെയും തെരഞ്ഞെടുക്കും തുടർന്ന് എം എൽഎ മാരുടെ പിന്തുണ ഉറപ്പാക്കുന്ന കത്തുമായി മുഖ്യകക്ഷിയുടെ നേതാവ് ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ്ര ഉന്നയിക്കും

ഡി എഫ് മന്ത്രിസഭയുടെ സ്ത്യപ്രതിജ്ഞ ഈ ആഴ്ച ഉണ്ടാകുമെന്നാണ് സൂചന

സംസ്ഥാന ചരിത്രത്തിലാദ്യമായാണ് ഒരു മുന്നണി ഭരണത്തൂടർച്ചയെന്ന നേട്ടം കൈവരിക്കുന്നത്

വാശിയേറിയ ത്രികോണ മത്സരങ്ങൾ നടന്ന മണ്ഡലങ്ങളിൽ ബി ജെ പി ശക്തമായ പോരാട്ടം നടത്തിയെങ്കിലും ഒരിടത്തും സീറ്റ് നേടാനായില്ല

സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടന്ന കഴക്കൂട്ടം കോന്നി വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലടക്കം വിജയം നേടിയാണ് എൽ ഡി എഫ് ചരിത്ര നേട്ടം കൈവരിച്ചത് പൂഞ്ഞാറിൽ പി സി ജോർജ് പരാജയപ്പെട്ടപ്പോൾ പാലയിൽ കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിക്കെതിരെ യു ഡി എഫിലെ മാണി സി കാപ്പൻ വിജയിച്ചു

കുണ്ടറയിൽ കോൺഗ്രസിന്റെ പി സി വിഷ്ണുനാഥിനോടായിരുന്നു മേഴ്സിക്കുട്ടിയമ്മയുടെ തോൽവി മഞ്ചേശ്വരം കോന്നി എന്നീ മണ്ഡലങ്ങളിൽ മത്സരിച്ച ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രണ്ടിടത്തും പുരാജിയപ്പെട്ടു

ഇന്നോ നാളെയോ ടി

ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും രാഷ്ട്രീയ സെക്യുലർ മജ്ലിസ് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയും വിജയിച്ചു

സംയുക്ത മോർച്ചയുടെ ബാനറിലാണ് ഇടതുപാർട്ടികളും കോൺഗ്രസും പുതുതായി രൂപീകരിച്ച ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ടും മൽസരിച്ചത് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചരിത്രത്താലാദൃമായി സി

ഐ എമ്മിന് ഒരു സീറ്റ് പോലും ലഭിക്കാതിരുന്നതും ഇതാദ്യം അതേസമയം കനത്ത വിജയം നേടിയെങ്കിലും മുഖ്യമന്ത്രി മമത ബാനർജി നന്ദിഗ്രാമിൽ ബിജെപിയിലെ സുവേന്ദു അധികാരിയോടു പരാജയപ്പെട്ടത് ടി

നന്ദിഗ്രാമിലെ ഫലത്തിന്റെ കാര്യത്തിൽ സൂപ്രീംകോടതിയെ സമീപിക്കാനാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നീക്കം അതിനിടെ മമത മുഖ്യമന്ത്രിയ്ക്കരുതെന്ന് ആവശ്യപ്പെട്ട് ബി ജെ

കോൺഗ്രസ് സിപി ഐഎം സി

തുടങ്ങിയ കക്ഷികളുമായി സഖ്യമുണ്ടാക്കിയാണ് ഡി

ഐ എ ഡി എം

ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി

പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജിയെയും ഡിഎംകെ അധ്യക്ഷൻ എം കെ സ്റ്റാലിനെയും അദ്ദേഹം ട്വിറ്ററിലൂടെ അനുമോദിച്ചു

കഴിഞ്ഞ രാത്രിയിലും തുടർന്ന വോട്ടെണ്ണലിന്റെ ഫലം ഇന്ന് ഉച്ചയോടെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ ഉത്തർപ്രദേശിൽ നാല് ഘട്ടങ്ങളിലായാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത്

കൊട്ടാര്ക്കര്യിലെ വസതിയിൽ പൊതു ദർശനത്തിന് വച്ച ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ അടക്കം നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു

മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് അടക്കമുളളവർ അനുശോചനം രേഖപ്പെടുത്തി

ജയശങ്കർ ഇന്ന് ലണ്ടൻ സന്ദർശനം ആരംഭിക്കും സന്ദർശനം നാല് ദിവസം നീണ്ടുനിൽക്കും

ബ്രിട്ടൻ യു

ഇരുരാജ്യങ്ങളും പങ്കിടുന്ന ബഹുമുഖവും തന്ത്രപരവുമായ ബിന്യം് വളർത്തുന്നതിനും പരസ്പര താത്പരൃമുള്ള മേഖലാ ആഗോള വിഷയങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഉച്ചകോടി അവസരമൊരുക്കും

എല്ലിൽ ഇന്ന് നടക്കാനിരുന്ന കൊൽക്കത്ത ബാംഗ്ലൂർ മത്സരം മാറ്റിവച്ചു